പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രതിഷേധം നടത്തുന്നവരോടാണ് കേന്ദ്രമന്ത്രി ഇക്കാര്യം ആവശ്യപ്പെട്ടത് ഭോപ്പാലിൽ വാർത്താലേഖകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പൌരത്വ ഭേദഗതി നിയമം കാലഘട്ടത്തിന്റെ ആവശൃമാണെന്നും രാജൃത്തിന് വളരെ സുപ്രധാനമാണെന്നും ശ്രീ പ്രൊഖ്രിയാൽ പറഞ്ഞു അയൽ രാജ്യങ്ങളിൽ പീഡനമനുഭവിച്ചവർക്ക് നിയമവും നീതിയും ലഭ്യമാക്കുമെന്ന് കേന്ദ്രമന്ത്രി നരേന്ദ്ര സിംഗ് തോമർ പദ്യത്തു നിയമത്തിന്റെ പേരിൽ കോൺഗ്രസും ഇടതുപക്ഷവും ആക്രമം വ്യാപിപ്പിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് ശ്രീ തോമർ കുറ്റ്പ്പെടുത്തി

ഷിംലയിൽ പൊതു സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം കൂടുതൽ വിവരങ്ങളുമായി അർച്ചന വോയിസ് പൌരത്വ ഭേദഗതി നിയമത്തിൽ അത്തരം വ്യവസ്ഥ ചൂണ്ടിക്കാട്ടാൻ ശ്രീ അമിത് ഷാ പ്രതിപക്ഷ കക്ഷികളെ വെല്ലുവിളിച്ചു അയൽരാജ്യങ്ങളിൽ മതത്തിന്റെ പേരിൽ പീഡനം അനുഭവിക്കുന്നവർക്ക് പൌരത്വം അനുവദിച്ചിട്ടുണ്ട് പൌരത്വ ഭേദഗതി നിയമത്തിൽ കോൺഗ്രസും സഖ്യകക്ഷികളും അപവാദം പ്രചരിപ്പിക്കുകയാണെന്ന് ശ്രീ അമിത് ഷാ പറഞ്ഞു

മോദി ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു റാങ്ക് ഒരു പെൻഷൻ പദ്ധതി നിരവധി വിമുക്ത ഭടൻമാർക്ക് ആശ്വാസമേകി

എല്ലാ കുടുംബങ്ങൾക്കും എൽ പി ജി കണക്ഷൻ നൽകിയ ആദ്യ സംസ്ഥാനമാണ് കൃിഹിമാചൽ പ്രദേശെന്ന് ശ്രീ അമിത് ഷാ പറഞ്ഞു ബി ജെ പി പ്രിക്കിംഗ് പ്രസിഡന്റ് ജെ പി നദ്ദ കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂർ എന്റിവരും സംബന്ധിച്ചു

പരിപാടിയിൽ പങ്കു വഹിക്കുന്നതിനുള്ള ആശയങ്ങളും വിഷയങ്ങളും സമർപ്പിക്കാൻ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു

നിർദ്ദേശങ്ങൾ ഇന്ന് കൂടി സമർപ്പിക്കാം

കുറ്റകൃത്യങ്ങൾക്ക് വിവരസാങ്കേതികവിദ്യയും പ്ര ആശയസാങ്കേതികതയും ഉപയോഗിക്കുന്നത് പ്രവർത്തനം അന്താരാഷ്ട്രതലത്തിൽ വിശദീകരിക്കുന്നതിന് ലോകത്തിന്റെ എല്ലാ പ്രദേശങ്ങളെയും പ്രതിനിധീകരിച്ച് ഒരു വിദഗ്ധസമിതിയുടെ രൂപവത്കരണവും പ്രമേയത്തിൽ ഉൾക്കൊളളിച്ചിട്ടു് ഇതിന്റെ പ്രവർത്തന രൂപരേഖ അംഗീകരിക്കുന്നതിനുളള സമിതി അടുത്ത വർഷം ഓഗസ്റ്റിൽ യോഗം ചേരും

പോസ്റ്റുകൾക്കും തദ്ദേശവാസികൾക്കും നേരെ പാകിസ്ഥാൻ വെടിവയ്പ്പും ഷെല്ലാക്രമണവും സൈന്യം നടത്തുകയായിരുന്നുവെന്ന് പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചു ഇന്ത്യൻ സേന ശക്തമായി തിരിച്ചടിച്ചു

ഇന്നലെ രണ്ടു തവണയാണ് പാകിസ്ഥാൻ ഇന്ത്യൻ അതിർത്തിയിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചത്

ഇന്ത്യൻ സേനാംഗങ്ങൾ വളരെ അച്ചടക്കമുള്ളവരും മതേതരത്വം മുറുകെ പിടിക്കുന്നവരാണ് മാനവികതയും മര്യാദയുമാണ് അവരെ നയിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു യുദ്ധതടവുകാരോട് യുദ്ധസമയത്തും പാലിക്കുന്നതിനെക്കുറിച്ച് മുതിർന്ന ഉദ്യോഗസ്ഥരോടും സേനാംഗങ്ങളോടും ന്യൂഡൽഹിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച എല്ലാ കാര്യങ്ങളിലും കൃത്യമായ അന്വേഷണം നടക്കുന്നുണ്ടെന്നും കരസേനാ മേധാവി അറിയിച്ചു

ഡൽഹിയിലാണ് ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്നത് കൂടുതൽ വിവരങ്ങളുമായി അർച്ചന

മൂടൽമഞ്ഞിനെ തുടർന്ന് ഡൽഹി വിമാനത്താവളത്തിൽ ദൂരക്കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ടു ജമ്മു കാശ്മീരിലെ ശ്രീനഗറിൽ ഇന്നലെ രാത്രി സീസണിലെ ഏറ്റവും കുറഞ്ഞ താപനിലയാണ് രേഖപ്പെടുത്തിയുത്

ചണ്ഡിഗഢ് പ ഫത്തേപൂർ ഉത്തർപ്രദേശ്ച് ്എന്നിവിടങ്ങളിൽ താഴ്ന്ന താപനിലയിൽ മാറ്റമില്ല അടുത്ത രൂ ദിവസം കൂടി അതിശൈത്യം തുടരുമെന്ന് കാലാവസ്ഥാനിരീക്ഷണകേന്ദ്രം അറിയിച്ചു വർഷാവസാനത്തോടെ കൊടുംതണുപ്പിന് ശമനമുാകുമെന്നാണ് സൂചന ന്യൂസ് ഡെസ്ക് ആകാശവാണി

ആറ് വിഭാഗങ്ങളിലായി പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും തിങ്കളാഴ്ച ചരിത്ര കോൺഗ്രസ് സമാപിക്കും

മുൻ എം ഡ്ട് ജോ്യ് തോമസ് മുൻ ചെയർമാൻ വാര്യംസിംഗ് മുൻബാങ്ക് ഡിയ്റക്ടർ സുർജിത് സിംഗ് അറോറ പ്രമോട്ടർമാരായ രാക്കെഷ്ട് വാധവാൻ സാരംഗ് വാധവാൻ എന്നിവരുടെ പേരുകൾ കുറ്റപത്രത്തിൽ പരാമർശിക്കുന്നുണ്ട്

ഹൃദയാഘാതത്തെ തുടർന്ന് മുംബൈയിൽ ഇന്നലെ രാത്രിയായിരുന്നു അന്ത്യം

പ്രമുഖ ദേശീയ ദിനപ്പത്രങ്ങളിൽ കാട്ടൂണിസ്റ്റായി സേവനമനുഷ്ടിച്ചിട്ടുണ്ട്

ഇന്നലെ വൈകുന്നേരമാണ് തീപിടുത്തമുണ്ടായത് മൃതദേഹങ്ങൾ പരിശോധനയ്ക്കായി രാജവാഡി ആശുപത്രിയിലേക്ക് അയച്ചിട്ടു്

ചില രാസവസ്തുക്കൾ സൂക്ഷിച്ചിരുന്ന ഗോഡൌണുകളിലാണ് തീ പടർന്ന് പിടിച്ചതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു

അഞ്ച് പോയിന്റ് വീതം നേടി രാജസ്ഥാനും കർണ്ണാടകയും ഒപ്പത്തിനൊപ്പമാണ്

കുട്ടികളും സ്ത്രീകളും വയോജനങ്ങളും ഇവരിൽ ഉൾപ്പെടുത്തും ക്യാമ്പിലേക്ക് മാറ്റി

ഒരു ക്രിക്കറ്റ് കളിക്കാരനോട് പെരുമാറുന്നത് ഈ രീതിയിലാണെങ്കിൽ പാകിസ്ഥാനിലെ ഹിന്ദു സിഖ് ഉൾപ്പെടെയുള്ള മത ന്യൂനപക്ഷങ്ങളോടുള്ള സമീപനം ഊഹിക്കാവുന്നതേ ഉള്ളൂവെന്നും ശ്രീ ഗംഭീർ പറഞ്ഞു ചില പാകിസ്ഥാൻ കളിക്കാരിൽ നിന്ന് കനേരിയ വിവേചനം നേരിടുന്നതായി പാകിസ്ഥാൻ മുൻ പേസ് ബൌളർ ഷോയബ് ആദ്യം വെളിപ്പെടുത്തിയിരുന്നത് കനേരിയ ഒരു അക്തറാണ് ഹിന്ദുവായതിനാൽ അയാൾക്കൊപ്പം ഭക്ഷണം കഴിക്കാൻ പോലും കളിക്കാർ വിമുഖത കാട്ടിയിരുന്നതായി ഷോയബ് അക്തർ വെളിപ്പെടുത്തി

ബന്ധുവായ അനിൽ ദൽപത്തിന് ശേഷം പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിൽ കളിക്കുന്ന രണ്ടാമത്തെ ഹിന്ദുവാണ് കനേരിയ

ഇതു സംബന്ധിച്ചു പ്ര്മേയം പൊതുസഭ അംഗീകരിച്ചു

അതേസമയം രാഖിനെ സംസ്ഥാനത്തിന്റെ രോഹിംഗ്യൻ പ്രശ്നം പരിഹരിക്കാൻ യു എൻ പൊതുസഭാ പ്രമേയം പര്യാപ്തമല്ലെന്ന് യു എന്നിലെ മ്യാൻമർ സ്ഥാനപതി ഹൌ ദോ സിയാൻ പറഞ്ഞു

കോട്ടയിലെ മാതൃ ശിശു ആരോഗൃപരിപാലന കേന്ദ്രത്തിലാണ് സംഭവം ഉണ്ടായത്